രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷ്മായ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ നിയമ്സഭാ കക്ഷി യോഗം ചേർന്നു മുഖ്യമന്ത്രി അശോക് ഗൃഹ്ലോട്ടിന് ഭൂരിപക്ഷ പിന്തുണ

ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ്സ് പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു വിജയ ശതമാനത്തിൽ മുന്നിൽ തിരുവനന്തപുരം മേഖല

രാജൃത്തെ ജനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുമായി വളരെ വേഗത്തിൽ പൊരുത്തപ്പെടുന്നവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗൂഗിൾ സി ഇ ഒ സുന്ദർപിച്ചൈയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത്

ഇ

ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൌകര്യ വികസനം കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലാണ് വരുന്ന ഏഴ് വർഷങ്ങളിലായി ഗൂഗിൾ നിക്ഷേപം നടത്തുകയെന്ന് യോഗത്തിന് ശേഷം അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

രാഷട്രീയ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തത്

എ മാരുടെ പിന്തുണ തനിക്കൊപ്പമാണെന്നുമുളള ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റെ വാദത്തെ ് തുടർന്നാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്നു ചേർന്ന യോഗം ആവശ്യപ്പെട്ടു സർക്കാരിന് സമ്പൂർണ്ണ ഭൂരിപക്ഷമുണ്ടെന്നും അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി നേരത്തെ എല്ലാ എം എൽ എ മാരും ഭൂന്ത്രിമാരും നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കൺമെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു

അന്താരാഷ്ട്ര സഹകരണത്തിന് ഏറെ പ്രാധാന്യമുളള ഒരു സാഹചരൃത്തിലൂടെയാണ് നാമിപ്പോൾ കടന്നുപോകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ചര ലക്ഷം കവിഞ്ഞതോടെയാണ് ഇത്

കോവിഡ് രൂക്ഷമായ മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം രണ്ടര ലക്ഷം കടന്നു

പത്തൊമ്പതിനായിരത്തില്ധികം ്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

ജവാന്മാർക്കും ഒരു ബി എസ് എഫ്

ജവാൻമാർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു ഇന്ന് രണ്ട് പേർ മരിച്ചു

തീരദേശങ്ങളിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാണിക്യവിളാകം പൂന്തുറ പുത്തൻപള്ളി വാർഡുകൾ കൊല്ലത്തെ ചവറ പന്മന ആലപ്പുഴയിൽ പട്ടണക്കാട് കടക്കരപ്പള്ളി ചേർത്തല സൌത്ത് മാരാരിക്കുളം നോർത്ത് കോടംതുരുത്ത് കുത്തിയതോട് തുറവൂർ ആറാട്ടുപുഴ എറണാകുളത്ത് ചെല്ലാനം മലപ്പുറത്ത് വെളിയംകോട് പെരുമ്പടപ്പ പൊന്നാനി മുനിസിപ്പാലിറ്റി താനൂർ മുനിസിപ്പാലിറ്റി എന്നീ തീര മേഖലകളിലാണ് ഇന്ന് മുതൽ നിയന്ത്രണം

ചില നിബന്ധനകളോടെയാണ് അവകാശം

ഐ

തീവ്രവാദ പ്രവർത്തനത്തിന് ധനം സ്വരൂപീക്കുന്നതിന് സ്വർണക്കടത്തിൽ നിന്നുള്ള ധനം വിനിയോഗിച്ചുവെന്ന് എൻ ഐ

കോടതിയിൽ പറഞ്ഞു

ഒരു റിപ്പോർട്ട്

അമേരിക്ക ബ്രസീൽ ഇന്ത്യ റഷ്യ എന്നീ രാജ്യങ്ങളാണ് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്